ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണ് പത്രിക പുറത്തിറക്കുന്നത്

ൾ ൽ ൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കു്ന്നു ന്യൂഡൽഹിയിൽ പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണ് പത്രിക പുറത്തിറക്കുന്നത് ചടങ്ങുകൾ പുരോഗമി ക്കുകയാണ് ഒരാളുടെ കാഴ്ച്ചപ്പാടല്ല ജനങ്ങളുടെ ശബ്ദമായിരിക്കും പത്രി കയിൽ പ്രതിഫലിക്കുകയെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ അറി യിച്ചിരുന്നു തൊഴിൽ സൃഷ്ടിക്കും കാർഷിക പ്രതിസന്ധിക്കും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകൾ ശക്തിപ്പെടുത്തുന്നതിനും സാമ്പത്തിക വളർച്ച ത്വരിത ഗതിയിലാക്കുന്നതിനും നിർദേശങ്ങൾ പത്രികയിൽ ഉണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കോൺഗ്രസും ബി ജെ പിയും സ്വീകരിക്കുന്നത് ഒരേ നയനി ലപാടുകളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ബദൽ നയം നടപ്പാക്കാൻ കെൽപ്പുള്ള ഗവൺമെന്റാണ് അധികാ രത്തിൽ വരേണ്ടതെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു വിരലി ലെണ്ണാവുന്ന കോർപ്പറേറ്റുകൾക്കു വേണ്ടിയാണ് മോദി ഭരണം നടത്തുന്നത് കള്ളപ്പണക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് ബി ജെ പിക്ക് സ്ഥാനാർത്ഥി പോലുമില്ലാത്ത വയനാട്ടിൽ മത്സരിക്കുന്നതിലൂടെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി എന്ത് സന്ദേശമാണ് നൽകുന്ന തെന്നും മുഖ്യമന്ത്രി ചോദിച്ചു

നാളെ കോഴിക്കോട്ട് തങ്ങുന്ന അദ്ദേഹം മറ്റ ന്നാൾ വയനാട്ടിലെത്തി നാമനിർദേശ പത്രിക സമർപ്പിക്കും തുടർന്ന് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തും രാഹുലിന്റെ വരവിന് മുന്നോടിയായി വയനാട്ടിൽ എസ്

ജി സംഘം അതീവസുരക്ഷ ഒരുക്കിയിട്ടുണ്ട് കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൌണ്ടിൽ നാളെ വൈകീട്ട് ട്രയൽ റൺ നടത്തും

രാഹുൽ ഗാന്ധിയോടൊപ്പം നാലു പേർക്ക് മാത്രമെ കലക്ടറുടെ ചേംബറി ലേക്ക് കയറാൻ അനുമതിയുള്ളൂ വയനാട്ടിൽ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി നാളെ പത്രിക നൽകും തൃശൂർ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി രാജാജി മാത്യൂ തോമസ് പത്രിക നൽകി കണ്ണൂർ പാർലമെന്റ് മണ്ഡലം എൻഡിഎ സ്ഥാനാർഥി സി

പത്മനാഭൻ അല്പസമയത്തിനകം ജില്ലാ വരണാധികാരിയായ കലക്ടർ മുമ്പാകെ പത്രിക സമർപ്പിക്കും കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നിന്ന് പ്രകടനമായെത്തിയാണ് പത്രിക സമർപ്പിക്കുക

ഗുജറാത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പണവും മയക്കുമരുന്നുകളും പിടി ച്ചെടുത്തതെന്ന് കമ്മീഷൻ കേന്ദ്രങ്ങൾ ന്യൂഡൽഹിയിൽ പറഞ്ഞു

ന ആലത്തൂരിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി ക്കെതിരായ എൽ ഡിഎഫ് കൺവീനർ എ വിജയരാഘവന്റെ പരാമർശത്തിൽ സിപി ഐഎം പരസ്യമായി മാപ്പു പറയണമെന്ന് കെ പി സി സി പ്രസി ഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു സ്ത്രീത്വത്തെ അപ മാനിച്ചതിന് അദ്ദേഹത്തിനെതിരെ പാർട്ടി അച്ചടക്ക നടപടിയെടു ക്കണമെന്നും കോൺഗ്രസ് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വടകരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ആലത്തൂരിലെ യുഡിഎഫ് സ്ഥാനാർഥിയെ വൃക്തിഹതൃ നടത്താനോ വേദനിപ്പിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ലെന്നും പ്രസംഗത്തിന് മാധ്യമങ്ങൾ താനുദ്ദേശിക്കാത്ത അർഥം നൽകുകയായി രുന്നുവെന്നും എൽഡിഎഫ് കൺവീണർ എ വിജയരാഘവൻ പറഞ്ഞു

കോൺഗ്രസിനെ പോലെയുള്ള ഒരു ദേശീയ പാർട്ടി മുസ്തിം ലീഗിന് കീഴടങ്ങുന്നതും തീവ്രവാദത്തോട് മുസ്ലിം ലീഗ് അടുക്കുന്നതുമാണ് പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചതെന്നും വിജയരാഘവൻ മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരി ക്കുമ്പോൾ പ്രസംഗത്തിൽ പ്രാസഭംഗി സ്വീകരിക്കുന്നത് സ്വാഭാവികമാണെന്നും അതിനെ വളച്ചൊടിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു സ്ത്രീകൾ പൊതുരംഗത്തേക്ക് കൂടുതലായി കടന്നുവരണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും വിജയരാഘവൻ വൃക്തമാക്കി എ വിജയരാഘവൻ തന്നെ കുറിച്ച് നടത്തിയ മോശം പരാ മർശം വേദനിപ്പിച്ചുവെന്ന് രമ്യാഹരിദാസ് പറഞ്ഞു ഉത്തരവാദി ത്വപ്പെട്ട നേതാവ് തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരം പരാമർശം നടത്തിയത് ശരിയായില്ല വിജയരാഘവനെതിരെ ഉച്ചകഴിഞ്ഞ് ആലത്തൂർ ഡി വൈ എസ് പിയ്ക്ക് പരാതി നൽകുമെന്നും രമൃ ആലത്തൂരിൽ വ്യക്തമാക്കി യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരായ എ വിജയരാഘവന്റെ പരാമർശം പ്രതിഷേധാർഹവും അപമാനകരവുമാണെന്ന് മുൻമു ഖൃമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു സ്ത്രീത്വത്തെയും ദളിത് വിഭാഗ ത്തെയും വിജയരാഘവൻ അധിക്ഷേപിച്ചതായും അദ്ദേഹം കോട്ട യത്ത് വ്യക്തമാക്കി സിപിഐഎം സ്മനില തെറ്റിയ അവസ്ഥയി ലാണെന്നും ഉമ്മൻചാണ്ടി അഭിപ്രായപ്പെട്ടു ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ അപമാനി ക്കുന്ന തരത്തിൽ വിജയരാഘവൻ പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പരാമർശത്തെ വളച്ചൊടി ച്ചതാണെന്ന് കോടിയേരി കൽപ്പറ്റയിൽ വ്യക്തമാക്കി വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഇടതുപക്ഷ ത്തിന്റെ ലക്ഷ്യമെന്നും മുന്നണിയുടെ പ്രചാരണ പരിപാടികളിൽ മാറ്റമുണ്ടാകില്ലെന്നും കോടിയേരി അറിയിച്ചു ആലത്തൂർ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരായ എൽ ഡി എഫ് കൺവീനറുടെ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങളിൽ സ്പീക്കർ അഭി പ്രായം പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം സ്വകാര്യ ചാനലി നോട് വ്യക്തമാക്കി യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ മോശം പരാമർശം നട ത്തിയ എ വിജയരാഘവനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്ന് നീക്കണമെന്ന് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ലതികാ സുഭാഷ് പറഞ്ഞു ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ടും വനിതാ കമ്മീഷൻ പ്രതികരിക്കാത്തത് എന്തെന്നും അവർ മാധ്യ മങ്ങളോട് ചോദിച്ചു കോഴിക്കോട് ജില്ലയിൽ ഭിന്നശേഷി സൌഹൃദ്ദ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ ഭാഗമായി പോളിംഗ് സ്റ്റേഷനില്ലെത്താൻ വാഹനം ആവശ്യമുള്ള ഭിന്നശേഷിക്കാർക്ക് വാഹന് സൌകര്യം ഏർപ്പാടാ ക്കുമെന്ന് ജില്ലാ കലക്ടർ സാംബശിവ റാവു അറിയിച്ചു

ഹർജി അടിയന്തര മായി പരിഗണിക്കേണ്ട സാഹചര്യം എന്താണെന്ന് കോടതി ചോദി ച്ചു വിധി റദ്ദാക്കണമെന്ന ആവശ്യം ഗുജറാത്ത് ഹൈക്കോടതി തള്ളിയ സാഹചരൃത്തിലാണ് ഹാർദ്ദിക് പട്ടേൽ സുപ്രീംകോട തിയെ സമീപിച്ചത് സുപ്രീംകോടതി തീരുമാനം ലോക്സഭാ തെര ഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഹാർദ്ദിക് പട്ടേലിന് തിരിച്ചടിയാ യി

ഈയിടെ കോൺഗ്രസിൽ ചേർന്ന ഹാർദ്ദിക് പട്ടേൽ പാർട്ടി ടിക്കറ്റിൽ മത്സരിക്കാനാണ് തീരുമാനി ച്ചിരുന്നത്

യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ ഹർജിയിലാണ് കോടതി നടപടി അഴിമതി നിരോധന നിയമപ്രകാരം മന്ത്രിക്കെതിരെ നടപടി ആവശൃപ്പെട്ടായി രുന്നു ഫിറോസിന്റെ ഹർജി ഫിറോസിന്റെ പരാതിയിൽ നടപടി അവസാനിപ്പിച്ചത് എന്തിനെന്ന് വിശദീകരിക്കാനും കോടതി ആവ ശ്യപ്പെട്ടു ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സിനെ നേരിടും രാത്രി എട്ടിന് ജയ്പൂരിലാണ് മത്സരം

സംസ്ഥാനത്ത് കനത്ത് ചൂട് തുടരുന്നതിനിടെ വയനാട് ഒഴികെ ജില്ലകളിൽ ജാഗ്രതാ നിർദേശം ഇന്ന് കൂടി തുടരുമെന്ന് കാലാ വസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു ഉയർന്ന താപനിലയിൽ രണ്ട് മുതൽ മൂന്ന് വരെ ഡിഗ്രീ സെൽഷ്യസ് വർദ്ധനയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്

നാലു പേർക്ക് ജില്ലയിൽ സൂര്യാത പമേറ്റു

തൊടുപുഴയിൽ അമ്മയുടെ കാമുകന്റെ ക്രൂര പ്പീഡനത്തിനി രയായി വെന്റിലേറ്ററിൽ കഴിയുന്ന ഏഴു വ്യസ്സുകാരന്റെ തുടർ ചികിത്സ സംബന്ധിച്ച് ഇന്ന് തീരുമാനമെടുക്കും

നിയോ ഗിച്ച മെഡിക്കൽ സംഘം ഇന്ന് കോലഞ്ചേരി മെഡിക്കൽ കോളെ ജിലെത്തി കുഞ്ഞിനെ സന്ദർശിക്കുന്നുണ്ട് അതേസമയം കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്

തുടർന്ന് ഇരുവരെയും കൊട്ടാരക്കര എസ് പി ഓഫീസിൽ എത്തിച്ച് ചോദ്യം ചെയ്തുവരികയാണ്

തിരുവനന്തപുരം തൊളിക്കോട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ മുൻ ഇമാം ഷെഫീഖ് അൽ ഖാസിമിയുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും